ലോക്സഭ പരിഗണിക്കുന്നു കാശ്മീർ ഇന്തൃയുടെ അവിഭാജ്യ ഘടകമെന്ന് ആഭ്യന്തരമന്ത്രി പരീക്ഷ നടത്തിപ്പിൽ വീഴ്ച വ്യന്നിട്ടില്ലെന്ന് പി എസ്

ചെയർമാൻ സിവിൽ പോലീസ്റ് ഓഫീസർ പരീക്ഷയെക്കുറിച്ച് സത്യസ്ന്ധമായ അന്വേഷണം നടന്നതായും എം

സി യുടെ്യും ഗവൺമെന്റിന്റെയും വിശ്വാസൃത ന് തകർന്നതായി പ്രതിപക്ഷനേതാവ്

എസ് സി അഴിമതി സംബന്ധിച്ച് സി ബി ഐ അന്വേഷണം വേണമെന്ന് ബിജെപി സംസ്ഥാന അദ്ധ്യക്ഷൻ

എസ് ഉദ്യോഗസ്ഥൻ ശ്രീറാം വെങ്കിട്ടരാമനെ പോലീസ് കസ്റ്റഡിയിൽ വേണമെന്ന അപേക്ഷ കോടതി തള്ളി

സമ്പൂർണ്ണ ആധിപത്യത്തിനായി ഇന്ത്യ ജമ്മുകശ്മീരിൽ കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ച നടപടികൾ രാഷ്ട്രീയ നീക്കമല്ലെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു രാജ്യത്താകെ നിയമം നിർമ്മിക്കാനുളള പൂർണ അധികാരം പാർലമെന്റിനുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി

ബില്ലും പ്രമേയവും അവതരിപ്പിച്ച് ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് ചർച്ച ആരംഭിച്ചത്

നിയമം ലംഘിച്ചാണ് ബിൽ അവതരിപ്പിച്ചതെന്നും കശ്മീരിനെ തുറന്ന ജയിലാക്കുകയാണെന്നും കോൺഗ്രസ് കക്ഷി നേതാവ് അധീർ രഞ്ജൻ ചൌധരി ആരോപിച്ചു

ബില്ലിനെ സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരുത്താൻ ഗവൺമെന്റ് തയ്യാറാകണമെന്നും അധീർ രഞ്ജൻ ചൌധരി ആവശ്യപ്പെട്ടു അതേസമയം പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾക്ക് അടിസ്ഥാനമില്ലെന്ന് ആഭ്യന്തരമന്ത്രി സമർഥിച്ചു

പാക് അധീന കശ്മീരും ഇന്ത്യയുടെ ഭാഗമാണെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ്ഡെസ്ക് ആകാശവാണി അയോദ്ധ്യ അയോദ്ധ്യ രാമജന്മഭൂമി ബാബറി മസ്ജിദ് ഭൂമിതർക്ക കേസിൽ മധ്യസ്ഥശ്രമം പരാജയപ്പെട്ടതിനെ തുടർന്ന് സുപ്രീംകോടതിയിൽ വാദം തുടങ്ങി ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയുടെ അദ്ധ്യക്ഷതയിലുള്ള അഞ്ചംഗ ഭരണഘടനാ ബഞ്ചാണ് കേസ് പരിഗണിക്കുന്നത് ജസ്റ്റിസുമാരായ എസ്

വൈ ചന്ദ്രചൂഢ് അശോക് ഭൂഷൻ എസ്

നസീർ എന്നിവർ ഈ മാസം രണ്ടിന് മധ്യസ്ഥ സമിതിയുടെ റിപ്പോർട്ട് പരിഗണിച്ചിരുന്നു മുൻ സുപ്രീംകോടതി ജഡ്ജി എഫ്

ഐ ഖലീഫുള്ളയുടെ നേതൃത്വത്തിലുള്ള സമിതിക്ക് നാല് മാസക്കാലത്തോളമുള്ള ശ്രമങ്ങളിൽ സമവായത്തിലെത്താൻ സാധിച്ചിരുന്നില്ല

ശ്രീ രവിശങ്കർ മൂതീർന്ന അഭിഭാഷകൻ ശ്രീറാം പഞ്ചു എന്നിവരുൾപ്പെട്ട സമിതി വിഷ്ടുത്തിൽ പരിഹാരം കാണാൻ സാധിച്ചില്ല എന്ന റിപ്പോർട്ടാണ് സുപ്രീര്കോടതിയിൽ സമർപ്പിച്ചത്

സിവിൽ പോലീസ് ഓഫീസർ പരീക്ഷയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളെക്കുറിച്ച് സത്യസന്ധമായ അന്വേഷണം നടത്തിയതായും ഇതുസംബന്ധിച്ച റിപ്പോർട്ട് കമ്മീഷൻ വിശദമായി പരിശോധിച്ചതായും അദ്ദേഹം പറഞ്ഞു

എസ് സി യുടെയും ഗവൺമെന്റിന്റെയും വിശ്വാസ്യത തകർന്നതായി പ്രതിപക്ഷനേതാവ് രമേശ് ചെന്നിത്തല യൂണിവേഴ്സിറ്റി കോളേജിലെ ആക്രമണ കേസിലെ പ്രതികൾ പി എസ് സി പരീക്ഷയിൽ അട്ടിമറി നടത്തിയെന്ന കണ്ടെത്തൽ പുറത്തുവന്നതിനെ തുടർന്ന് തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പോലീസ് കോൺസ്റ്റബിൾ പരീക്ഷയിൽ ക്രമക്കേട് കാട്ടിയാണ് യൂണിവേഴ്സിറ്റി കോളേജിലെ എസ്

ഐ പ്രവർത്തകർ കടന്നു കൂടിയതെന്ന പ്രതിപക്ഷ ആരോപണം ശരിപ്പയ്ക്കുന്നതാണ് പി എസ് സി യുടെ സ്ഥിരീകരണമെന്നും അദ്ദേഹം പ്പറഞ്ഞു

എസ് സി ചെയർമാനും സംശയത്തിന്റെ നിഴലിലാണ്ടെന്നും അദ്ദേഹത്തിന്റെ പങ്കും അന്വേഷിക്കണമെന്നും പ്രതിപ്ക്ഷന്താവ് ആവശ്യപ്പെട്ടു

സി യുടെ വിശ്വാസ്യത മാത്രമല്ല് മുഖ്യമന്ത്രിയുടെ വിശ്വാസ്യതയും നഷ്ടപ്പെട്ടിരിക്കുന്നു സിപ്പിഐ അന്വേഷണം വേണമെന്ന ആവശ്യം വീണ്ടും ഉന്നയിക്കുകയാണെന്നും കോടതിയെ സമീപിക്കുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു പി എസ് സി പി എസ് സി നിയമനങ്ങളിലെ അഴിമതി സംബന്ധിച്ച് സിബിഐ അന്വേഷണം വേണമെന്ന് ബി ജെ പി സംസഥാന അധ്യക്ഷൻ പി

ശ്രീധരൻ പിളള ആവശ്യപ്പെട്ടു

ബഷീറിന്റെ മരണത്തിനിടയാക്കിയ കാർ അപകടത്തിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ള ശ്രീറാം വെങ്കിട്ടരാമനെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടണമെന്ന പോലീസിന്റെ അപേക്ഷ കോടതി തള്ളി തിരുവനന്തപുരം ജുഡീഷ്യൽ ഒന്നാം ക്ലാസ്സ് മജിസ്ട്രേറ്റ് കോടതിയാണ് കേസിൽ ഇന്ന് വാദം കേട്ടത് ചികിത്സയിലാണെന്ന മെഡിക്കൽ റിപ്പോർട്ട് പരിഗണിച്ചാണ് നടപടി വാഹനാപകടത്തെക്കുറിച്ച് വിശദമായി അന്വേഷിക്കുന്നതിന് പ്രത്യേക പോലീസ് സംഘത്തിന് രൂപം നൽക്ടിയിട്ടുണ്ട് എഡിജിപി ഡോ

അതിനിടെ മെഡിക്കൽകോളേജിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുന്ന ശ്രീ റാമിന്റെ ആരോഗ്യസ്ഥിതി വിലയിരുത്താൻ മെഡിക്കൽബോർഡ് രൂപീകരിച്ചിട്ടുണ്ട് ഹൈക്കോടതി നിർദ്ദേശം നെടുങ്കണ്ടം കസ്റ്റഡി മരണക്കേസിൽ മെഡിക്കൽ രേഖകളും മജിസ്ട്രേറ്റ് കോടതി നടപടികളുടെ വിശദാംശങ്ങളും ഹാജരാക്കാൻ ഹൈക്കോടതി നിർദ്ദേശം വ്യാഴാഴ്ചയ്ക്കകം കോടതിയിൽ സമർപ്പിക്കണം മുൻ എസ്

പരിഗണിക്കുകയായിരുന്നു ഹൈക്കോടതി

ശശീന്ദ്രൻ സംസ്ഥാന ഗവൺമെന്റിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടു വരുന്ന നിലയ്ക്ക് അങ്കണവാടി ജീവനക്കാർക്കും അർഹമായ പരിഗണന നൽകുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ കോഴിക്കോട് കുരുവട്ടൂർ ഗ്രാമപഞ്ചായത്തിലെ മാതൃകാ അങ്കണവാടിയുടെ ഉദ്ഘാടനം നിർവ്വഹിക്കുകയായിരുന്നു മന്ത്രി

നിർമ്മാണത്തിലിർിക്കുന്ന റിസോർട്ടിലാണ് മണ്ണിടിഞ്ഞത്

പ്രദേശത്തെ രണ്ട് കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു

ഇടുക്കിയെ തോൽപ്പിച്ച് കോട്ടയം തുടർച്ചയായ മൂന്നാം തവണയും ഫൈനലിലെത്തി

അശാസ്ത്രീയമായി പാറപ്പൊട്ടിച്ചതും മണ്ണ് മാറ്റുന്നതും അപകടകാരണമായെന്ന് റവന്യൂപ്രിൻസിപ്പിൾ സെക്രട്ടറിക്ക് നൽകിയ കത്തിൽ പറയുന്നു എന്നാൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കാൻ സബ് കലക്ടർ ശ്രമിക്കുകയാണെന്ന് ദേവികുളം എംഎൽ

മാനന്തവാടി വയനാട് മാനന്തവാടിയിൽ മാവോയിസ്റ്റ് സാന്നിധ്യം സംശയിക്കുന്നു

തവിഞ്ഞാൽ അഭിനഗർ കോളനിയിലെ തോട്ടാശേരി കളത്തിൽ സിദ്ദീഖിന്റെ വീട്ടിലാണ് ഇന്നലെ രാത്രി ഏഴരയോടെ രണ്ട് പുരുഷൻമാരും രണ്ട് സ്ത്രീകളുമടങ്ങിയ നാലംഗ ആയുധധാരികളെത്തിയത്